വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു

സ്ഥിതിഗതികൾ സംബന്ധിച്ച് രാജ്യരക്ഷാ മന്ത്രി രാജ് നാഥ് സിംഗ് ഇന്ന് ലോക്സഭയിൽ പ്രസ്താവന നടത്തും

ഇന്ത്യക്ക് യു എൻ

സമിതിയിൽ അംഗത്വം വോട്ടെടുപ്പിൽ ചൈനയ്ക്ക് തോൽവി

നാമനിർദ്ദേശം ചെയ്യാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും

ഇവയിൽ നാല് പദ്ധതികൾ ജലവിതരണവുമായും രണ്ടെണ്ണം മലിനജല സംസ്കരണവുമായും ഒരെണ്ണം നദീമുഖ വികസനവുമായും ബന്ധപ്പെട്ടതാണ്

നമാമി ഗംഗ പദ്ധതിയ്ക്ക് കീഴിൽ പറ്റ്നയിലെ ബെയുർ കർമാലിചക് എന്നിവിടങ്ങളിൽ ആരംഭിക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്

ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കേന്ദ്ര വാർത്ത വിനിമയ വകുപ്പ് മന്ത്രി രവിശങ്കർ പ്രിസാദ് കേന്ദ്ര ജലശക്തി മന്ത്രി ഗജേന്ദ്ര സിംഗ് ശെഖാവത്ത് ബിഹാർ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു

അതിർത്തി വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശൃത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രസ്താവന

രോഗമുക്തിയിൽ നിരന്തരമായ വർദ്ധനവ് രാജ്യത്തിന്റെ മൊത്തം രോഗികളുടെ എണ്ണം കുറയ്ക്കുന്നു

പ്ടെസ്റ്റ് ട്രാക്ക് ആൻഡ് ട്രീറ്റ് സമീപനം ഫലപ്രദമായി നടപ്പിലുക്കുന്നത് ഉയർന്ന രോഗമുക്തി നിരക്കിനും മരണനിരക്ക് കുറിയ്ക്കുന്നതിനും കാരണമായി

തൊട്ടുമുമ്പുള്ള ആഴ്ചകളുമായ്ടി താരതമൃം ചെയ്യുമ്പോൾ തിരുവനന്തപുരം കൊല്ലം കോട്ടയം കണ്ണൂർ കാസകോട് ജില്ലകളിൽ സെപ്റ്റംബർ രണ്ടാംവാരം പോസില്ലിപ്റ്റി നിരക്ക് ഉയർന്നുവെന്നാണ് വിലയിരുത്തൽ

സി യുടെ ദേശീയ യോഗ്യതാ പരീക്ഷയായ നെറ്റ് മാറ്റിവച്ചതായി നാഷണൽ ടെസ്റ്റിങ്ങ് ഏജൻസി അറിയിച്ചു

എൻ സാമ്പത്തിക സ്ട്മൂഹിക കൌൺസിലിന്റെ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ അംഗമായി ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടു

ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ടി

കഴിഞ്ഞ ദിവസം മുസാഫർപൂറിലും പറ്റ്നയിലും സന്ദർശനം നടത്തിയ സംഘം ഇന്ന് ബോധഗയയും ഭഗൽപൂറും സന്ദർശിക്കും സംസ്ഥാന ചീഫ് സെക്രട്ടറിയുമായി ചർച്ച നടത്തിയ ശേഷം സംഘം ഡൽഹിയിക്ക് മടങ്ങും

പത്മവിഭുഷൻ പത്മഭൂഷൻ പത്മശ്രീ എന്നിവ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികളാണ്

പാപ്പരത്തനിയമ ഭേദഗതി രാജ്യസഭ പരിഗണിക്കും

സംസ്ഥാന ധനമന്ത്രിയുമായി ചർച്ച നടക്കുന്നുണ്ടെന്നും കുടിശ്ശിക തുക ലഭ്യമാക്കാൻ കേന്ദ്ര ജലവിഭവ മന്ത്രാലയവുമായി ബന്ധപ്പെടുന്നതായും ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു

വികസനം മനുഷ്യാവകാശ സംരക്ഷണം സമാധാനം എന്നീ ലക്ഷൃങ്ങൾ കൈവരിക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ നിലകൊള്ളുന്നത്

ഷിൻസോ ആബെയ്ക്ക് പകരമാണിത് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും ആബെയുടെ അനുയായിയുമാണ് യോഷീഹിതേ സുഗെ

താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന പ്രരീക്ഷണങ്ങൾ സുരക്ഷിതമാണെന്ന് മെഡിസിൻസ് ഹെൽത്ത് ്റെഗുലേറ്ററി അതോറിറ്റി സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പരീക്ഷണം പുനരാരംഭിച്ചത്

മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് സംഘർഷ ബാധിത മേഖലയിലെ പഞ്ചായത്തുകളിൽ നിന്നുള്ള യുവാക്കളെ ബസ്തർ സ്പെഷ്യൽ ഫോഴ്സിലേക്ക് റിക്രൂട്ട് ചെയ്യും

ഈ കമ്പനികളുടെ പരുത്തി വസ്ത്രങ്ങൾ കമ്പ്യൂട്ടർ ഭാഗങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി മരവിപ്പിച്ച് യു എസ് കസ്റ്റംസ് ആന്റ് ബോർഡർ പ്രൊട്ടക്ഷൻ ഉത്തരവിറക്കി

ഇൌ നിരോധനം ഏർപ്പെടുത്തിയത്

ഒരു വർഷത്തിനുള്ളിൽ തദ്ദേശീയരായ ഒരു ലക്ഷം പേർക്ക് പട്ടയം വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം